ജെ

ഛത്തീസ്ഗഡിൽ മന്ത്രിസഭ രൂപീകരിക്കും രാജസ്ഥാനിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി മധ്യപ്രദേശിലും കോൺഗ്രസ് ഒറ്റകക്ഷിയാകാൻ സാധ്യത

മിസോറമിൽ കോൺഗ്രസിനെ പിന്തള്ളി മിസോ നാഷണൽ ഫ്രണ്ട് ഭരണം പിടിച്ചെടുത്തു

നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച കോൺഗ്രസിനെയും തെലങ്കാന രാഷ്ട്ര സമിതിയെയും മിസോം നാഷണൽ ഫ്രണ്ടിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നവീകരിച്ച ടെർമിനലും സൌരോർജ പദ്ധതിയും ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പുരുഷന്മാരുടെ ലോകകപ്പ് ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയ ഫ്രാൻസിനെയും ഇന്ന് നേരിടും

രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധരരാജെയും ഛത്തീസ്ഗഢ് മുഖ്യമന്ത്രി രമൺസിംഗും ഗവർണർക്ക് രാജി സമർപ്പിച്ചു ഇരുവരും അവരുടെ മണ്ഡലങ്ങളിൽ വിജയം കരസ്ഥമാക്കി

മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബുദ്ധ്നി മണ്ഡലത്തിൽ വിജയിച്ചു തെലങ്കാനയിൽ ടിആർഎസ് തുടർച്ചയായി രണ്ടാമതും ഗവൺമെന്റ് രൂപീകരിക്കും

അഞ്ച് സീറ്റുമായി കോൺഗ്രസാണ് കൃതിട്ടു പിന്നിൽ മുഖ്യമന്ത്രി ലാല് തൻഹ്വാല മത്സരിച്ച രണ്ടു സീറ്റുകളില്ലും പരാജയപ്പെട്ടു

തെലങ്കാനയിൽ ടി

എസ് നേതാവ് കെ ചന്ദ്രശേഖര റാവുവിനെയും മിസോം നാഷണൽ ഫ്രണ്ടിനെയും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു തോൽവി ബി ജെ പി അംഗീകരിക്കുന്നതായും ജയവും പരാജയവും ജീവിതത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യയുടെ വികസനത്തിന് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ തിരഞ്ഞെടുപ്പു ഫലം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഢിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ജനങ്ങളെ സേവിക്കാൻ ബി ജെ

ഈ സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ അഭിവൃദ്ധിയ്ക്കുവേണ്ടി ബി ജെ പി ഗവൺമെന്റ് നല്ലരീതിയിൽ പ്രവർത്തനം കാഴ്ചവച്ചതായും അദ്ദേഹം പറഞ്ഞു

കോൺഗ്രസിന് വളരെവലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ നൽകിയതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

പി കോൺഗ്രസുമായി യോജിക്കുന്നതാണെന്നും അതിനാൽ അവരുടെ പിൻതുണ തേടുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രയാസം ഇല്ലെന്നും ർഭുഹുൽഗാന്ധി പറഞ്ഞു

ദേശീയ രാഷ്ട്രീയത്തിൽ ടി

എസ് മുഖ്യ പങ്കുവഹിക്കുമെന്ന് ടി

എസ് അധ്യക്ഷൻ ചന്ദ്രശേഖര റാവു പറഞ്ഞു രാജസ്ഥാനിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ തങ്ങളുടെ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനായി ഇന്ന് യോഗം ചേരും മിസോറാമിൽ എം

എഫ് പ്രസിഡന്റ് സോറംതങ്ക ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ച് ഇന്നലെ ഗവർണർ കുമ്മനം രാജശേഖരനെ കണ്ടു ഐസ്വാളിൽ ഇന്നലെ ചേർന്ന പുതിയ എം

എ മാരുടെ യോഗം അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു

കുറ്റമറ്റ രീതിയിൽ വോട്ടെണ്ണൽ നടത്താൻ വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ജെ പി കോൺഗ്രസ് എ ജി

ഇതോടെ ആറു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണത്തിൽ വിശാലവും അത്യാധുനികവുമായ സൌകര്യമാണ് ആഭ്യന്തര യാത്രക്കാർക്ക് ലഭ്യമാകുന്നത്

ഇരു രാഷ്ട്രങ്ങളും ബുദ്ധിസത്തിന്റെ പാരമ്പര്യത്തിലൂടെയും സംസ്കാരത്തിലൂടെയും തനതായ വൈകാരിക ബന്ധം പങ്കുവയ്ക്കുന്നതായി നയ് പി താ യിൽ രാഷ്ട്രപതിക്കായി സംഘടിപ്പിച്ച ഔദ്യോഗിക വിരുന്നു സത്കാരത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താലുള്ള പദ്ധതികളായ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആന്റ് എഡ്യുക്കേഷനും റൈസ് ബയോ പാർക്കും അദ്ദേഹം ഇന്ന് സന്ദർശിക്കും

സ്ത്രീകളുടെയും കുട്ടികളുടെയും കൌമാരക്കാരുടെയും ആരോഗ്യ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ അറിവും വിശ്വാസ്വതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പങ്കാളിത്ത ഫോറം സമ്മേളനം സംഘടിപ്പിക്കുന്നത്

ഇത് രണ്ടാം തവണയാണ് പങ്കാളിത്ത ഫോറത്തിന് ഇന്ത്യ ആഥിത്യമരുളുന്നത്

ഡബ്ള്യൂ എഫ് ലോക ബാഡ്മിന്റങ്ങള്ള ടൂർണമെന്റ് ഫൈനൽ ചൈനയിലെ ഗുവാങ്ഷോവിൽ ഇന്ന് അരംഭിക്കും ഇന്ത്യയിൽ നിന്നും പി

സിന്ധുവും സമീർ വർമ്മയ്ക്ക് മാത്രമാണ് ഫൈനൽ യോഗൃത നേടിയിട്ടുള്ളത്

പണം തട്ടിയെടുത്ത് ഒരാൾക്കും രാജ്യത്തുനിന്നും രക്ഷപ്പെടാനാവില്ലെന്ന സന്ദേശം കൂടുതൽ വ്യക്തമായതായി എസ്

ഐ ചെയർമാൻ രജ്നീഷ് കുമാർ മുംബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ഐ ചെയർമാൻ പറഞ്ഞു

കഴിഞ്ഞദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ബ്രക്സിറ്റ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വോട്ടെടുപ്പ് നിർത്തിവച്ചിരുന്നു